പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് വിജയകരമായി പൂർത്തിയായി

താൽപര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചാൽ ഇറാന്റെ നാശമായിരിക്കും ഫലമെന്ന് ഡോണൾഡ് ട്രംപ്

ജ്യോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് നദാൽ ഇറ്റാലിയൻ ഓപ്പൺ സ്വന്തമാക്കിയത്

കൂടുതൽ വിവരങ്ങളുമായി നവനീത

അവസാന ഘട്ട വോട്ടെടുപ്പ് ഇന്നലെയാണ് പൂർത്തിയായത്

ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പശ്ചിമബംഗാളിലാണ്

ബിഹാറിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്

അതേസമയം ഡൽഹിയിലെ ചാന്തിനിചൌക്ക് നിയോജക മണ്ഡലത്തിൽ ഇന്നലെ റീപോളിംഗ് നടന്നു തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നാല് സീറ്റുകളിൽ വീതവും കർണാടകയിൽ രണ്ടും ഗോവയിൽ ഒരു സീറ്റിലും ഇന്നലെ റീ പോളിംഗ് നടന്നു വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലയിലെ റീപോളിംഗ് ബുത്തുകളിൽ ഏർപ്പെടുത്തിയത് വോട്ടിംഗ് മെഷീനുകൾ ചിൻമയ കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് ചാല സൂക്ഷിച്ചിരിക്കുന്നത്

ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചുനിർത്തിയാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് സമാധാനപരവും സ്വതന്ത്രവും സുതാര്യവുമായിരുന്നുവെന്ന് ശ്രീ

വോട്ടെടുപ്പിന്റെ ഭാഗമായ മുതിർന്ന പൌരന്മാർ സ്ത്രീകൾ അംഗപരിമിതർ ഉൾപ്പെടെയുള്ളവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നന്ദി രേഖപ്പെടുത്തുന്നതായി പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കും നന്ദി അറിയിച്ചിട്ടുണ്ട്

കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത വസ്തുവകകളെക്കാൾ മൂന്നിരട്ടിയാണ് ഇത്തവണ കണ്ടുകെട്ടിയതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡി

ജെ

യുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെന്റ് തിരൂച്ചുവരുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം

ഡി എ

കോസ്റ്ററിക്കയിലെ യൂണിവേഴ്സ്ട്രിറ്റി ് ഓഫ് പീസിന്റെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചതിന്റെ അനുമോദനച്ചടങ്ങിൽ പ്ക്കെടുക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയക്കാർ തങ്ങൾ എ്തിരാളികൾ മാത്രമാണ് ശത്രുക്കൾ അല്ല എന്ന് ഓർക്കണമെന്നും തങ്ങളുടെ ഭാഷ അന്തസ്സുറ്റതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ശ്രീ വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു

നാഷണൽ സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാന്റ് സംഘടനയിലെ അംഗങ്ങളായ ഇവരിൽ നിന്ന് എ

അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഇറാന് തക്ക മറുപടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് അറിയിച്ചു

ഇറാന്റെ ഭീഷണികളെ ചെറുക്കുന്നതിനായി ഗൾഫ് മേഖലയിൽ അമേരിക്ക സൈനിക വിന്വാസം ശക്തമാക്കിയിട്ടുണ്ട്

എന്നാൽ അമേരിക്കയുടെ ഇറാനു മേലുള്ള സൈനിക നടപടികൾക്ക് യു

ട്രംപിന്റെ ദേശീയ സൂരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇറാനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഭരണകൂടത്തിലെ മറ്റുള്ളവർ ഇതിനെ പ്രതിരോധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ

ഇന്ത്യൻ നാവിക സേനയുടെ കപ്പലുകളായ ഐ

എസ് കൊൽക്കത്തയും ശക്തിയും അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതായി നാവിക സേന ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു

വനിതാ വിഭാഗം കിരീടം കരോലീന പ്തിസ്കോവ സ്ത്രിമാക്കി

മന്ത്രാലയത്തിലെ ദൈനംദിന കാര്യങ്ങളും തർക്ക പരിഹാരങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കുന്നതിനാണ് നിർമിത ബുദ്ധി സംവിധാനം പോർട്ടലിൽ ഉപയോഗിക്കുന്നത് വൻകിട കമ്പനിക്കാരും നിക്ഷേപകരും ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന ആശ്രയമാണ് എം

മോറിസന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ ഓസ്ട്രേലിയ്ക്ക് എല്ലാ വിജയവും ഉണ്ടാകട്ടെയെന്ന് ശ്രീ മോദി ടിറ്റർ സന്ദേശ്ത്തിൽ ്അറിയിച്ചു